ഇന്ന് ഇടു ക്കി കാസർകോട് ജില്ലകളിൽ റെഡ് അലർട്ട്

എസ് ആർ ഒ

ആറ് സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ചു

ഇന്നലെ അന്തരിച്ച ഡൽഹി മുൻ മുഖ്യമന്ത്രിയും മുൻ കേരളാ ഗവർണറുമായിരുന്ന ഷീല ദീക്ഷിതിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നിഗംബോധ് ഘട്ടിൽ ഇന്തൊനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ പി വി സിന്ധു ഇന്ന് ജപ്പാന്റെ അകാനെ യെമാഗുച്ചിയെ നേരിടും

ജില്ലകളിൽ ജാഗ്രത തുടരും ഇന്നലെ ഇടുക്കി യിലും കാസർകോട്ടും ഉരുൾപൊട്ടി

അതിതീവ്ര മഴസാധ്യത നിലനിൽക്കുന്നതിനാൽ ഇന്ന് ഇടു ക്കി കാസർകോട് ജില്ലകളിലും നാളെ മലപ്പുറം കോഴിക്കോ ട് വയനാട് കണ്ണൂർ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു

തീരമേഖലയിലെ കടലാക്രമണം നിയന്ത്രിക്കാൻ അടിയ ന്തിര തീര സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി

അടിയന്തിര പ്രവൃത്തികൾക്ക് ഈ ഫണ്ടിൽനിന്ന് പണം ചെലവഴിക്കാൻ അനുമതി നൽകിയിട്ടു ണ്ട് കാസർകോട് ജില്ലയിലെ വെള്ളപ്പൊക്ക സാഹചര്യം തുട രുകയാണ്

പ്രപ്പ വില്ലേജിലും നിരവധി കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയി ട്ടുണ്ട് ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും അണക്കെ ട്ടുകളിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചു ഹൈറേഞ്ചിൽ മലയിടി ച്ചിലും ഉരുൾപൊട്ടലുമുണ്ടായി ഇടുക്കി കീരിത്തോടിന് സമീപം പകുതിപ്പാലത്ത് മലയിടിഞ്ഞു ഇടുക്കി നേര്യമം ഗലം റോഡിൽ മങ്കുവ ഇഞ്ചത്തൊട്ടി മലമുകളിൽനിന്നും കൂറ്റൻ പാറകൾ വീണു ഇടുക്കി കല്ലാർ ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ രാവിലെ തുറ ന്നു ചിന്നാർ തൂവൽ പെരിഞ്ചാംകുട്ടി പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു കോട്ടയം ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മീനച്ചിലാറും മണിമലയാറും മൂവാറ്റുപുഴയാറും നിറ്റഞ്ഞു

കാഞ്ഞിരപ്പള്ളി മണിമല റോഡിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു കൊല്ലം തേനി ദേശീയപാതയിൽ പുല്ലുപാറക്ക് സമീപം മണ്ണിടിഞ്ഞ് വീണു വാഹനങ്ങൾ ഒരു വശത്തുകൂടി മാത്രമാണ് കടന്നുപോകുന്നത്

ജില്ലയിൽ എല്ലാ വിധ ഖനനത്തിനും കലക്ടർ നിരോധനം ഏർപ്പെടുത്തി

സംഭരണ ശേഷി യുടെ പകുതിപോലും വെള്ളം ഡാമുകളിൽ ഇല്ല

എന്നാൽ കുറ്റ്യാടി ഭൂത ത്താൻകെട്ട് മണിയാർ പഴശ്ശി ഡാമുകൾ വെള്ളം നിറഞ്ഞ തിനാൽ തുറന്നുവിട്ടിട്ടുണ്ട്

ചന്ദ്രയാൻ വിക്ഷേപണത്തിന് ഒരുക്കങ്ങളെല്ലാം പൂർത്തി യായതായി ഐ എസ് ആർ ഒ കേന്ദ്രങ്ങൾ അറിയിച്ചു

കഴിഞ്ഞ തിങ്ക ളാഴ്ച നിശ്ചയിച്ചിരുന്ന വിക്ഷേപണം നിശ്ചിത സ്മയത്തിന് ഒരു മണിക്കൂർ മുമ്പ് മാറ്റിവെയ്ക്കുകയായിരുന്നു ക്രയോജ നിക് എഞ്ചിനിലെ സാങ്കേതിക തക്ടർറിനെത്തുടർന്നായിരുന്നു വിക്ഷേപണം മാറ്റിയത് പ്രളയാനന്തര പുനർ നിർമ്മാണ പരിപാടി റീ ബിൽഡ് കേരളയിൽ ഗതാഗത രംഗത്ത് വിപുലമായ പദ്ധതികൾ നട പ്പാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു വിവിധ മേഖലകളിൽ ഹരിത ബസ് ഇടനാഴികൾ സ്ഥാപിക്കുന്ന കാര്യം സജീവ പരിഗണനയിലാണ്

മുനമ്പം ഗോശ്രീ റൂട്ടിലും ഇ ബസ്സുകൾ ഏർപ്പെടുത്താൻ ആലോചനയുണ്ട് എറണാകുളം തോപ്പുംപടിക്കും ഗോശ്രീക്കുമിടയിൽ പുതുതലമുറ ട്രാം പദ്ധതിയും പരിഗണിക്കുന്നുണ്ട്

കളമശ്ശേരിയിൽ മൾട്ടിമോഡൽ ലോജിസ്റ്റിക്സ് പോർട്ട് നിർമ്മിക്കും ഗതാ ഗത വകുപ്പിന് കീഴിൽ സംസ്ഥാന ട്രാൻസ്പോർട്ട് ഫണ്ട് സ്വരൂപിക്കാനും പദ്ധതിയുണ്ട് നാല് വിമാനത്താവള നഗര ങ്ങൾ കേന്ദ്രീകരിച്ച് മെട്രോ പൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി രൂപീകരിക്കുന്ന കാര്യവും സംസ്ഥാന മെട്രോ പൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ബിൽ നടപ്പാക്കുന്ന വിഷയവും പരിഗണനയിലുണ്ട്

പ്രളയാന ന്തരം സംസ്ഥാന ഗവൺമെന്റ് കൈക്കൊണ്ട നടപടികൾ വിശദീകരിക്കാനും ആനുകൂല്യങ്ങൾ കൈമാറാനും വിവിധ പദ്ധതികളിൽ നിർമ്മിച്ച താക്കോൽ കൈമാറാനും സംഗമ ങ്ങൾ വേദിയായി

മധ്യപ്രദേശ് ഗവർണറായിരുന്ന ആനന്ദി ബെൻ പട്ടേലിനെ ഉത്തർപ്രദേശിലും ബീഹാർ ഗവർണർ ലാൽജി ഠണ്ടനെ മധ്യ പ്രദേശിലും മാറ്റി നിയമിച്ചു ഫാഗു ചൌഹാനെ ബീഹാറിലും ജഗ്ദീപ് ധൻകറിനെ പശ്ചിമബംഗാളിലും രമേശ് ബൈസിനെ ത്രിപുരയിലും ഗവർണർമാരാക്കി

എൻ രവിയാണ് നാഗാലാൻഡിലെ പുതിയ ഗവർണർ

മൈസൂർ കൊച്ചി സർവീസും ഇതിൽ ഉൾപ്പെടുന്നു മൈസൂർ ഹൈദരബാദ് മൈസൂർ ഗോവ കർണ്ണാടക ഷി ല്ലോങ് റൂട്ടുകളിലാണ് മറ്റ് സർവ്വീസുകൾ

ബംഗാളി ടയർ വൃവസായിയും ബി ജെ പി നേതാവുമായ ഡോ സാവർ ധനാനിയ റബ്ബർ ബോർഡ് ചെയർമാനാകും ഇപ്പോൾ റബ്ബർബോർഡ് അംഗമാണ് അദ്ദേഹം അടുത്ത യാഴ്ച കോട്ടയത്തെ റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് ഡോ ധ നാനിയ സ്ഥാനമേൽക്കും ഗൊരഖ്പൂർ ഐ ഐ ടി യിൽനിന്ന് റബ്ബർ ടെക്നോളജിയിൽ ഗവേഷണ ബിരുദം നേടിയ വ്യക്തിയാണ് ധനാനിയ ഇന്നലെ അന്തരിച്ച മുൻ ഡൽഹി മുഖ്യമന്ത്രിയും മുൻ കേരള ഗവർണറുമായിരുന്ന ഷീലാ ദീക്ഷിതിന്റെ ഭൌതികശ രീരം ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെ നിസാമുദ്ദീനിലെ നിഗംബോ ധ്ഘട്ട് ശ്മശാനത്തിൽ സംസ്കരിക്കും

ഐ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർള യു

എ ചെയർ പേഴ്സൺ സോണിയാ ഗാന്ധി മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗ് രാഹുൽ ഗാന്ധി സി

എം ജനറൽ സെക്രട്ടറി സീതാരാം യെച്ചൂരി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി തുടങ്ങിയ വരടക്കം നേതാക്കൾ അവർക്ക് അന്തിമോപചാരം അർപ്പിച്ചു

ഇൻഡൊനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഫൈനലിൽ പി വി സിന്ധു ഇന്ന് ജപ്പാന്റെ അഞ്ചാം സീഡ് അകാനെ യമാഗുചിയെ നേരിടും

ജല അതോറിറ്റിയുടെ സബ് ഡിവിഷണൽ ഓഫീസുക ളിൽ നടത്തിയ ഓപ്പറേഷൻ പഴ്സ് സ്ട്രിംഗ്സ് മിന്നൽ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെത്തു ടർന്ന് അസിസ്റ്റന്റ് എക്സിക്യുട്ടീവ് എഞ്ചിനീയർമാർ ഉൾപ്പെടെ നാലുപേരെ സസ്പെൻഡ് ചെയ്തു മന്ത്രി കെ

വയ നാടിന്റെ ആരോഗൃരംഗം വിലയിരുത്താൻ കേന്ദ്രസംഘം എത്തുന്നതിന് മുന്നോടിയായിരുന്നു പരിശോധന കൊല്ലത്തിനും ശാസ്താകോട്ടയ്ക്കും ഇടയിൽ റെയിൽവേ വൈദ്യുതലൈനിലുണ്ടായ തകരാർ രാത്രി എട്ട രയോടെ പരിഹരിച്ചു

ഇന്നലെ വൈകിട്ടുണ്ടായ തക രാർ ട്രെയിൻ ഗതാഗതത്തെ കാര്യമായി ബാധിച്ചിരുന്നു

സംസ്ഥാനതല ഉദ്ഘാടനം മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ തിരുവനന്തപുരത്ത് നിർവ്വഹിച്ചു ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ചടങ്ങുകളും സംഘടിപ്പിച്ചിരുന്നു കാലത്തിനനുസരിച്ച് ആരോഗ്യകരമായ മാറ്റങ്ങൾ ഉണ്ടാ ക്കുന്ന ഈറ്റില്ലമാണ് ഗ്രന്ഥശാലകളെന്ന് പ്രൊഫ